വെങ്കയ്യനായിഡു ത്രുടങ്ങിയ പ്രമുഖർ ഇന്ന് വാക് സിൻ സ്വീകരിച്ചു

സ്ഥിരീകരിച്ചു

സംസ്ഥാന സർക്കാരുകളുടെ ആരോഗ്യ ഇൻഷറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ സ്വകാര്യ ആശുപത്രികളെയും വാക്സിൻ വിതരണ കേന്ദ്രങ്ങളാക്കാമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കീഴിലുള്ളവ ഉൾപ്പെടെ എല്ലാ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളിലും വാക്സിനേഷൻ സ്ംവിധാനം ഒരുക്കാവുന്നതാണ് വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് സ്വന്തം താത്പരൃപ്രകാരമുള്ള വാക്സിനേഷൻ കേന്ദ്രം തെരഞ്ഞെടുക്കാം രജിസ്ട്രേഷൻ സമയത്ത് ഗുണഭോക്താവിന്റെ ഫോട്ടോ തിരിച്ചറിയൽ കാർഡിലുള്ള അടിസ്ഥാന വിവരങ്ങൾ എന്നിവ നൽകണം മൊബൈൽ നമ്പറിന്റെ കൃത്യത ഉറപ്പാക്കാൻ ഒറ്റത്തവണ പാസ്വേഡ് അയച്ച് പരിശോധന നടത്തും രജിസ്ട്രേഷൻ സമയത്ത് വാക്സിനേഷൻ സെന്ററുകളുടെ പട്ടികയും ഒഴിഞ്ഞ സ്സോട്ടുകൾ ലഭ്യമായ തീയതിയും കാണാം അതനുസരിച്ച് ലഭ്യമായ സ്തോട്ടുകൾ ബുക്ക് ചെയ്യാം ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പരമാവധി നാല് ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യാം

ഡൽഹി എയിംസ് ആശുപത്രിയിൽ നിന്നും ഇന്ന് രാവിലെയാണ് അദ്ദേഹം ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചത് രണ്ടാംഘട്ടത്തിൽ വാക്സിൻ സ്വീകരിക്കാൻ യോഗ്യരായ എല്ലാവരും തന്നെ കുത്തി വയ്പ് എടുക്കണമെന്ന് പ്രധാനമന്ത്രി അഭൃർത്ഥിച്ചു ഇന്തൃയെ കോവിഡ് മുക്തമാക്കുന്നതിനായി യോജിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു

ചെന്നൈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് ഉപരാഷ്ട്രപതി ഇന്ന് വാക്സിൻ സ്വീകരിച്ചത് രണ്ടാംഘട്ടത്തിൽ വാക്സിൻ സ്വീകരിക്കാൻ യോഗ്യരായ എല്ലാവരും വാക്സിനേഷനായി മുന്നോട്ടുവരണമെന്ന് ഉപരാഷ്ട്രപതി അഭ്യർത്ഥിച്ചു

കോവാക്സിനെതിരെ തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നതായും പ്രധാനമന്ത്രി വാക്സിൻ സ്വീകരിച്ചത് ഇക്കാരൃത്തിൽ ശരിയായ സ്പ്രന്ദേശം നൽകുന്നതായും കേന്ദ്ര ആരോഗൃമന്ത്രി ചൂണ്ടിക്കാട്ടി

വരും ദിവസങ്ങളിലെ കുത്തിവയ്പ്പിനായുളള രജിസ്ട്രേഷനും ആരംഭിച്ചിട്ടുണ്ട് വാക്സിനേഷന് സംസ്ഥാനം സുസജ്ജമാണെന്ന് ആരോഗൃമന്ത്രി കെ

മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉടൻ കൊവിഡ് വാക്സിൻ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി

കോവിഡ് ഭേദമായവരുടെ എണ്ണം ഒരു മ് കോടി ഏഴ് ലക്ഷം കവിഞ്ഞു

പഴം പച്ചക്കറി മത്സ്യവിഭവം തുടങ്ങി എല്ലാ മേഖലകളിലും ഭക്ഷ്യസംസ്കരണത്തിന് പ്രാധാന്യം നൽകണം ഇതിന് വേണ്ട സാങ്കേതികവിദ്യകളും സംഭരണ സൌകര്യങ്ങളും കർഷകർക്ക് അതാതിടങ്ങളിൽ ലഭ്യമാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ കാർഷിക മേഖലയ്ക്കായി സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രധാന മന്ത്രിയുമായി സംവദിക്കാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും അവസരം നൽകുന്നതാണ് ഈ പരിപാടി

ഇതോടെ ജി

ടോൾ പ്താസകളിൽ ഫാസ്റ്റാഗ് സംവിധാനം ഏർപ്പെടുത്തിയത് ടോൾ പിരിവ് സുഗമമാക്കിയതായി മന്ത്രി പറഞ്ഞു

വിർച്ചൽ രീതിയിൽ നടക്കുന്ന മേളയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്

എഫ് ഉഭയകക്ഷി ചർച്ചകൾക്ക് ഇന്ന് തുടക്കമായി

ജെ

ജെ പിയുടെ യും അസം ഗണ പരിഷത്തിന്റെയും ന്റെതാക്കൾ ഗോഹട്ടിയിൽ കൂടിക്കാഴ്ച നടത്തി

കോൺഗ്രസ് ജന്റ്റൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനീട്ടുയി ് അസമിൽ എത്തിയിട്ടുണ്ട്

പണിമുടക്കിനെ തുടർന്ന് കേരള എം

സർവകലാശാലകളും സാങ്കേതിക സർവ്വകലാശാലയും നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു